ലഡാഖിൽ നിയന്ത്രണ രേഖയിൽ നിന്ന് ഇന്തൃ ചൈന സൈനൃത്തിന്റെ പിൻമാറ്റം പുരോഗമിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ

രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അടൽ ഇന്നവേഷൻ മിഷൻ പ്രത്യേക ഓൺലൈൻ പഠനരീതി ആവിഷകരിച്ചു

ൃഇ്രു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു ധാരണയാണ് നടപ്പാക്കുന്നതെന്നും വിദേശകാരൃമന്ത്രി പ്റ്റുത്തു്

കോവിഡ് കോലുള്ള അനിശ്ചിതാവസ്ഥകളെ നേരിടാൻ ശരിയായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ആയോ എന്ന് സ്വയം നിർണ്ണയിക്കണമെന്നും ശ്രീ എം

ഈ മഹാമാരിയെ ഒരു ദുരന്തമായി മാത്രം കാണാതെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള അവസരമായി മാറ്റണമെന്ന് ഉപരാഷ്ട്രപതി ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു

രോഗം ഭേദമായവരുടെ എണ്ണത്തിൽ മഹാരാഷ്ട്രയാണ് മുന്നിൽ ഡൽഹി യും തമിഴ്നാടും തൊട്ടുപിന്നിൽ

ഇന്നലെ മാത്രം രണ്ടു ലക്ഷത്തി പതിനായിരത്തോളം സാമ്പിളുകളാണ് പരിശോധിച്ചത്

മഹാരാഷ്ട്ര പ്രതിപക്ഷനേതാവ് ദ്ദേഖ്ന്ദ്ര ഫഡ്നാവിസും അദ്ദേഹത്തിന് രോഗമുക്തി നേർന്നു ഇന്നലെയാണ് ശ്രീ ബച്ചനും മകൻ അഭിഷേക് ബച്ചനും കോവിഡ് സ്ഥിരീകരിച്ച് മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയുടെ ഔദ്യോഗിക വസതിയിലെ ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്

അവശ്യസർവ്വീസുകൾക്ക് ഇത് ബാധകമല്ല എന്നാൽ കടകളും കമ്പോളങ്ങളും അടച്ചിടണമെന്ന് സർക്കാർ നിർദേശിച്ചു

സ്വകാര്യ വാഹനങ്ങൾക്ക് സർവ്വീസ് ന്ടത്തുന്നതിന് അനുമതി നൽകിയിട്ടില്ല

സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണത്തിലും വർധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയത്

പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങൾ നൽകാം

കോവിഡിന്റെ സാഹച്ചര്യത്തിൽ വിവിധ മൊബൈൽ ആപ്പിക്കേഷനുകൾക്ക് പ്രിസക്തിയേറുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം

ഇ

രാജ്യത്തെ നൈപുണ്യശേഷി വികസിപ്പിക്കാനായി നീതി ആയോഗിന്റെ കീഴിലുള്ള ടിങ്കറിംഗ് അടൽ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത്

കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിലായവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചു

ഇന്നലെയാണ് ഇവരെ എൻ ഐ എ ബ്ലാ്ഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്

ഡി ജി ഡി ഐ

വിമാനത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് തീരസേനയുടെ കപ്പലെത്തി ഇവരെ പോർട്ട് ബ്ലെയറിലേക്ക് സുരക്ഷിതമായി എത്തിച്ചു

പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പണിപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ഇനിയും പ്രതിഷേധങ്ങൾ തുടരുമെന്ന് സമരക്കാർ അറിയിക്കുകയും ചെയ്തു

അഫ്ഗാനിലെ ഘാസ്നി പ്രവിശൃയിലാണ് സംഭവം

പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു